ജില്ലകളിലെ ദുരന്തമേഖലകൾ സന്ദർശിച്ച് തയ്യാറാക്കിയ കേരള പുനർനിർമ്മാണ പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു

ശബരിമല നട ഇന്ന് രാത്രി അടയ്ക്കും സന്നിധാനം കനത്ത സുരക്ഷയിൽ

കൈയ്യിൽ തന്നെയെന്ന് മുഖ്യ്മന്ത്രി പോലീസിനെ അണിനി രത്തി ഗവൺമെന്റ് മന്റുഷ്യാവകാശ ലംഘനം നടത്തുന്നതായി ബി ജെ

പി യെ സസ്പെന്റ് ചെയ്തതായി മുഖ്യമ ന്ത്രി

ശനിയാഴ്ച പുന്നമടക്കായലിൽ നടക്കും

ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം അല്പസമയത്തിനകം ലക്നൌവിൽ ആരംഭിക്കും

കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ മുഴുവൻ ദുരന്തമേഖലകളും സന്ദർശിച്ച് തയ്യാറാക്കിയതാണ് റിപ്പോർട്ട് മൂന്ന് ജില്ലകളിലേയും നഗരാസൂത്രണ വകുപ്പ് കാര്യാലയങ്ങളുടെയും മേൽനോട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യുട്ട് ഓഫ് ആർകിടെക്ട് ലെൻസ് ഫെഡ് റെൻസ് ഫെഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ജില്ലാ കളക്ടർ യു വി ജോസ് റീജ്യണൽ ടൌൺ പ്ലാനർ കെ വി അബ്ദുൾ മാലിക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ചാപ്റ്റർ പ്രതിനിധി വിവേക് തുടങ്ങിയവർ സംബന്ധിച്ചു മുന്നൂറോളം എഞ്ചിനീയർമാരും ആർക്കിടെകറ്റുമാരും ചേർന്നാണ് സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്

പോലീസ് സുരക്ഷയിലും സുഗമദർശനം നടത്തി തീർത്ഥാടകർ മലയിറങ്ങിക്കൊ ണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗ്ഗീസ്

അവിടത്തെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ശാന്തമായി നിൽക്കേണ്ട സ്ഥലമാണ് ശബരിമല അതിന് എന്തെങ്കിലും തടസമുണ്ടായാൽ അത് മാറ്റാൻ മാത്രമേ പോലീസ് ശ്രമിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ സന്നിധാനത്തുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ നിയന്ത്രണത്തിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡ് പ്രസ ശബരിമലയിൽ പോകുന്നതിൽ ് നിന്ന് തന്നെ മുഖ്യമന്ത്രി വിലക്കി എന്ന തരത്തിൽ പ്രച്ചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ

ഗൂഢലക്ഷ്യത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ശബരിമലയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചിത്തിര ആട്ട വിശേഷത്തിന് ശബരിമല ക്ഷേത്ര നട തുറന്നപ്പോൾ ശബരിമലയിൽ താൻ എത്താത്തത് വൃക്തിപരമായ കാരണങ്ങളാലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

ജെ

സംസ്ഥാന അദ്ധ്യക്ഷൻ പി

ദൈനംദിന കാര്യങ്ങളിൽ കടന്നുകയറിയതിന് ഗവൺമെന്റ മാപ്പു ചോദിക്കണമെന്നും ശ്രീ

ഇത് സംബന്ധിച്ച് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു

എസിന്റെയും ബി ജെപ്പിയുടെയും ശ്രമങ്ങളെ തടയാതെ അവർക്ക് ഒത്താശ ച്ചെയ്യുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തതെന്ന് പ്രതിപക്ഷുന്തോവ് രമേശ് ചെന്നിത്തല ശബരിമലയിലെ നിയന്ത്രണ്ണം പൊലീസിന് തന്നെയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ശ്രീ

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു

ഇത് ശരിയാണോയെന്ന് സ്ത്രീ സമൂഹവും വിശ്വാസ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും ചിന്തിയ്ക്കണമെന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു

പി നെയ്യാറ്റിൻകരയിൽ പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് യുവാവ് വാഹനം ഇടിച്ച് മരിച്ച സംഭവം ഗവൺമെന്റ് ഗൌരവപരമായാണ് കാണുന്നതെന്നും അന്വേഷണവിധേയമായി ഡി

പി യെ സസ്പെന്റ് ചെയ്തെന്നും മുഖൃമന്ത്രി പിണറായി വിജയൻ എ

സംഭവം ഗൌരവമായി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയത്തിൽ ഡി

തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൊടങ്ങാവിള സ്വദേശി സനലാണ് മരിച്ചത് കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തി നൊടുവിലാണ് ഡി

റോഡിലേക്ക് വീണ യുവാവിനെ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് നെയ്യാറ്റിൻകര യിൽ ഹർത്താൽ നടത്തി

മണിക്കൂറുകളോളം ഗതാഗതം ഡി

പി ബി ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം

ജെ പി യ്ക്ക് ജയം നേടാനായത്

ജെ പി യുടെ ശക്തികേന്ദ്രമായ ബെല്ലാരി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വി

വിജയിച്ചിരുന്ന മണ്ഡലമാണ് ബെല്ലാരി

വള്ളംകളിക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി രവികുമാർ

സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരാണെന്നും അതിൽ വിട്ടു വീഴ്ചയില്ലെന്നും മന്ത്രിപറഞ്ഞു ഹരിപ്പാട് കരുവാറ്റ ചെറുതന ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊപ്പാറക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് ഉണ്ട്

ബാലൻ ഇന്ത്യാ ചരിത്രത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്തു നടക്കുന്നതെന്ന് മന്ത്രി എ

സാംസ്കാരിക വകുപ്പുമായി സഹകരിച്ചു സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട് സംഘടിപ്പിക്കുന്ന നെഹ്റു സ്മൃതി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം